തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും

കേരളം മറ്റെന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്

ഇല്ലാതെ പ്രചാരണം ഇന്ന് ക്ര്വെകിട്ട് ഏഴിന് അവസാനിക്കും

മഹാരാഷ്ട്രയിൽ കോവിഡ് വൃാപനം രൂക്ഷമാകുന്നു

ലോകത്തിന് പ്രതീക്ഷയുടെവെളിച്ചമേകി ഇന്ന് ഈസ്റ്റർ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുകർമ്മങ്ങളും

മിയാമി ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലോക ഒന്നാം നമ്പർ താരം ആഷ്ലെയ് ബാർട്ടിക്ക്

കേരളത്തിലെ മലപ്പുറം തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്നീ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ എല്ലാ മെയ് രണ്ടിനാണ്

കോവിഡ് സാഹചര്യം പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമീഷൻ കൊട്ടിക്കലാശം വിലക്കിയിട്ടുണ്ട്

തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്രെ പ്രചാരണവും കൊട്ടിക്കലാശമില്ലാതെയാണ് അവസാനിക്കുന്നത്

വിലക്കുകൾ ലംഘിക്കുന്നവർക്ക് രണ്ട് വർഷംവരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും ചൊവ്വാഴ്ച രാവിലെ ഏഴുമുതൽ രാത്രി ഏഴുവരെയാണ് വോട്ടെടുപ്പ്

പൂർണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ടെടുപ്പിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി

സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാമേഖലകളാക്കി തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം ഇന്നു മുതൽ പുതിയ സുരക്ഷാ സംവിധാനം നിലവിൽ വരും

ആദ്യമായാണ് ഇത്രയധികം കേന്ദ്രസേനാവിഭാഗങ്ങൾ തിരഞ്ഞെടുപ്പിന് വിന്യസിക്കപ്പെടുന്നത്

ധീരരായ രക്തസാക്ഷികളുടെ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്നും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചാണ് താൻ ഈ അവസരത്തിൽ ഓർക്കുന്നതെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു

ഇന്നലെ ഛത്തീസ്ഗഢിലെ ബിജാപൂരിൽ മാവോയിസ്റ്റുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികരാണ് വീരമൃത്യു വരിച്ചത്

ഒരു വനിതയുൾപ്പെടെ രണ്ട് മാവോയിസ്റ്റുകളുടെ മൃതദേഹം പൊലീസ് കണ്ടെടുത്തിട്ടുണ്ട്

പ്രതിരോധ കുത്തിവയ്പ്പ് നിയമങ്ങൾ ലംഘിച്ച് ചിലർ അനധികൃതമായി രജിസ്റ്റർ ചെയ്യുന്നതായി സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു ഇതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ പുതിയ രജിസ്ട്രേഷൻ അടിയന്തിരമായി തടയാൻ തീരുമാനമായത്

നിലവിൽ രജിസ്റ്റർ ചെയ്ത ആരോഗൃപ്രവർത്തക്കരുടെ കുത്തിവയ്പ് എത്രയും വേഗം ഉറപ്പാക്കാൻ കേന്ദ്രം സ്ഥാസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നല്കി

ഇത് ആദ്യമായാണ് പ്രതിദിന കോവിഡ് കണക്കിൽ ഇത്രയും വർദ്ധനവ് ഉണ്ടാകുന്നത്

സംസ്ഥാനത്തുടനീളമുള്ള ക്രിസ്ത്രീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും പൂജയും നടക്കുകയാണ് പീഢനാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം ലോകത്തിന് പ്രത്യാശയേകി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സന്തോഷത്തിലാണ് ലോകം ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഇതോടെ വിശുദ്ധവാരാചരണത്തിന് സമാപനമാകും

മോനിവ പട്ടണത്തിലാണ് നാല് പേർ കൊല്ലപ്പെട്ടത് തെക്കൻ പട്ടണമായ താട്ടണിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്

മ്യാൻമറിന്റെ രണ്ടാമത്തെ നഗരമായ മൻഡാലെ വടക്കൻ നഗരമായ പകാന്ത് എന്നിവിടങ്ങളിലും പ്രതിഷേധം നടന്നു ആംഗ് സാൻ സൂകിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറച്ചതിലും സൈനിക ഭരണം തിരിച്ചുവരുന്നതിലും പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്

വനിതാ ഡബിൾസ് ഫൈനലും ഇന്ന് രാത്രിയാണ്